വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേരണമെന്ന് യു

അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനിടെ കർണ്ണാടക ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും അദ്ദേഹം പര്യാടനം നടത്തും

ജയചാമരാജ വാഡയാറുടെ ജന്മവാർഷിക പരിപാട്ടികളിൽ സംബന്ധിക്കും

എസ് എസ് അക്കാദമി ഓഫ് ഹൃയൂർ എഡ്യൂക്കേഷൻ ആന്ററി സർച്ചിന് രാഷ്ട്രപതി നാളെ ശിലാസ്ഥാപ്നം നടത്തും ശനിയാഴ്ച ബംഗളൂരുവിൽ സ്വാമിവിവേകാന്ന്ദ്ടി അനുസന്ധാന സൻസ്ഥാന സന്ദർശിക്കും

ഇതിനു പുറമേ ആശാ പ്രവർത്തകർക്ക്മറ്റ് ആനുകൂല്യങ്ങൾ നൽകാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതായി മന്ത്രിസഭായോഗത്തെ തുടർന്ന്കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ്ജാവദേക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത അഞ്ച്ശതമാനം വർദ്ധിപ്പിച്ചു ഇതിന് കഴിഞ്ഞ ജൂലൈമുതൽ പ്രാബല്യമു ്

പ്രകാശ്ജാവ്ദേക്കർ പറഞ്ഞു കശ്മീരിൽ നിന്നും പലായനം ചെയ്യേ ി വന്ന ശേഷം തിരിച്ചു വന്ന് സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയ കുടുംബങ്ങൾക്കുള്ള അഞ്ചരലക്ഷം രൂപ സമാശ്വാസ പാക്കേജിനും മന്ത്രിസഭായോഗം അനുമതി നൽകി

നാടൻ വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് പിടിയിലായത് ഇവരെ കങ്കേശൻ തുറയിലെ നാവിക കേന്ദ്രത്തിലേക്ക് കൊ ു പോയി മത്സ്യബന്ധന ബോട്ടുകളും ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തു

യന്ത്രത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിവരണം കമ്പനി അദ്ദേഹത്തിനു മുന്നിൽഅവതരിപ്പിച്ചു സഫ്രാൻ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമർത്ഥരായ ഇന്ത്യൻ വംശജരായ എഞ്ചിനീയർമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിലുള്ള സന്തോഷം അദ്ദേഹം ട്വീറ്റിലൂടെ പങ്കുവച്ചു

പ്രമുഖ നേതാക്കൾ പ്രചാരണരംഗത്ത് കൂടുതൽവിവരങ്ങളുമായിസുവർണ

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യ നാഥ് ബി ജെ

ജെ

ദേശീയ അധ്യക്ഷനും കേന്ദ്ര മന്ത്രിയുമായ അമിത്ഷാ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും ലത്തൂർ സാംഗ്ളി സോളാപൂർ ഉസ്മാനാബാദ് എന്നീ ജില്ലകളിലാണ് ശ്രീ

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എൻ സി

നേതാവ് ശരത് പവാർ ശിവസേനാ മേധാവി ഉദ്ദവ്താക്കറെ എന്നിവരും പ്രചരണത്തിന് സജീവമാണ് ഹരിയാനയിലും വിവിധ കക്ഷികളിലെ ദേശീയ നേതാക്കൾ പ്രചാരണരംഗത്തൂ ് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃതിത്തിലുള്ള സംഘം ഇന്ന് ഹരിയാനയിൽ വിവിധ വിഭാഗങ്ങളുമായി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

എസിലെ പ്രമുഖ ദേശീയ ആരോഗൃ ഉപദേശ സമിതിയിലേക്ക് ക്ഷണം മാനസികാരോഗ്യ രംഗത്തെ സമിതിയിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്

സമിതിയിൽ സേവനം നടത്തുന്നതിന് ക്ഷണിച്ചതിൽ യു

എന്നാൽ പ്രതിഭാഗം അഭിഭാഷകർ ഇതിനെ എതിർക്കുകയായിരുന്നു പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു

ബാലകൃഷ്ണൻ നായർ അദ്ധ്യക്ഷനായ സമിതിയിൽമുൻ ചീഫ് സെക്രട്ടറി ജോസ് സിറിയക് കെ

എ മുൻ എഞ്ചിനീയർആർ മുരുകേശൻ എന്നിവർ അംഗങ്ങളാണ്

ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്പനികൾ ഇന്ന് ് മരടിലെത്തും

റിസർവ് ബാങ്ക് നിബന്ധനകളോടെയാണ് ബാങ്കിന് അന്തിമ അനുമതി നൽകിയിട്ടുള്ളത്

ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചാണ് പുതിയ ബാങ്ക് കോടതിയുടെ കൂടി തീർപ്പിന് വിധേയമായി ബാങ്ക് രൂപീകരണം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മഞ്ഞ് കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷകളെല്ലാം നടത്താനാണ് സ്കൂൾ വിദ്യാഭ്യാസ ബോർഡിനോടും കോളേജ് യൂണിവേഴ്സിറ്റി അധികൃതരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്

ടർക്കിയുടെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണമെന്ന് യു എ

യും അറബ് ലീഗും കുറ്റപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ വോയ്സ് സിറിയയിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം ചേരണമെന്ന് യു

ഇ ആവശ്യപ്പെട്ടു

രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയുള്ള സൈനിക നടപടി മാത്രമാണ് നടത്തിയതെന്ന് ടർക്കി വ്യക്തമാക്കി ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന സിറിയൻ അതിർത്തിയിൽ സൂരക്ഷ ശക്തമാക്കുകയാണ് ചെയ്തതെന്ന് ഐകൃരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറസിന് അയച്ച കത്തിൽ യു

ടർക്കി അതിർത്തിയിൽ ഭീകര പ്രവർത്തകരുടെ സാന്നിധ്യം വൃക്തമാണെന്ന് കത്തിൽ സൂചിപ്പിച്ചിട്ടു ് സിറിയയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ടർക്കി ആഗ്രഹിക്കുന്നത്

ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും ഒളിത്താവളങ്ങളും ആയുധ പുരകളും മാത്രമാണ് ടർക്കി ലക്ഷ്യമാക്കിയിട്ടുള്ളതെന്ന് പ്രതിനിധി വ്യക്തമാക്കി വിഷയം ചർച്ച ചെയ്യാൻ യു

ഇന്ന് നടന്ന മത്സരത്തിൽ കൊളംമ്പിയൻ താരം വാലൻഷിയാ വിക്ടോറിയായെ കീഴ്പ്പെടുത്തിയാണ് മേരികോം സെമിയിൽ സ്ഥാനം ഉറപ്പിച്ചത്

ന്യൂഡൽഹിയിൽ ഇന്ത്യ സ്പോർട്സ് സമ്മേളനം ഉത്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഗെയിംസിനുള്ള ഒരുക്കങ്ങൾ ഗുവാഹത്തിയിൽ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം